റാഫേൽ നദാൽ ഓസ്ട്രിയൻ താരം ഡൊമിനിക് തീവിനെ നേരിടും

ഇന്നലെ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിംഗുമായ കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയുടെ ഭാഗമായി രണ്ട് ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പു വച്ചു ബ്രഹ്മപുത്ര നദിയിലെ വെള്ളം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ചാണ് ഒരു കരാർ ഇന്തൃയിൽ നിന്നും ബസുമതി അല്ലാത്ത അരി ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ളതാണ് രണ്ടാമത്തെ കരാർ

അടുത്തവർഷം വുഹാൻ മാതൃകയിലുള്ള അനൌദ്യോഗിക ഉച്ചകോടിയ്ക്കായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ചൈനീസ് പ്രസിഡന്റ് സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു

ഉത്തർപ്രദേശിലെ ബാല്യയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞതായും ടെറ്റനസും കുട്ടികളിൽ കാണുന്ന മറ്റ് ചില രോഗങ്ങളും നിയന്ത്രണ വിധേയമായതായും ലോകാരോഗൃ സംഘടനയുടെ റിപ്പോർട്ട് പരാമർശിച്ച് മന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിൽ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്ക്കരിച്ച പദ്ധതികളുടെ ഫലമായി ആരോഗ്യമേഖലയിൽ വൻ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ശ്രീ

നദ്ദ അഭിപ്രായപ്പെട്ടു

കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ രണ്ട് പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി

ഇടുക്കി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മഴ വ്യാപകമായ കൃഷി നാശം വിതച്ചു കാലവർഷ് സംസ്ഥാനത്ത് അതിശക്തമായി തുടരുന്നു ഇടുക്കിയിലെ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ മൂന്നു ഷട്ടറുകൾ തുറന്നു

ഇവർക്ക് പെൻഷൻ പോലുള്ള മറ്റാനുകൂലൃങ്ങൾ നൽകുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്രമന്ത്രി മനോജ് സിൻഹയുമായി ചർച്ച ചെയ്യുമെന്നും ശ്രീമതി

വെയിലിനെയോ മഴയെയോ വകവയ്ക്കാതെയാണ് തപാൽ ജീവനക്കാർ സേവനം അനുഷ്ഠിക്കുന്നതെന്നും ശ്രീമതി

ഇന്റർനെറ്റിന്റേയും ഇ മെയിലിന്റേയും യുഗത്തിൽ രാജ്യത്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സന്ദേശങ്ങൾ എത്തിക്കുന്ന പോസ്റ്റുമാൻമാർ ചെയ്യുന്ന സേവനം ഒരു സവിശേഷ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ സമ്പർക്ക് സമർദ്ധൻ പരിപാടിയുടെ ഭാഗമായി ശ്രീമതി സീതാരാമൻ ബാഡ്മിന്റൺ ദേശീയ കോച്ച് പി ഗോപീചന്ദുമായും മുൻ ക്രിക്കറ്റ് താരം വി

എസ് ലക്ഷ്മണനുമായും കൂടിക്കാഴ്ച നടത്തി

പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഓരോ വർഷവും അഞ്ചു ലക്ഷം രൂപയുടെ സംരക്ഷണം നല്കാൻ ദൌത്യം ലക്ഷ്യമിടുന്നു ദൌതൃത്തിൽ അംഗമായ പൊതു സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഗുണഭോക്താവിന് പണരഹിത ആനുകൂല്യം ഇതിലൂടെ ലഭ്യമാകും ഹിമാചൽപ്രദേശ് ഹരിയാന ജമ്മുകാശ്മീർ ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുൾപ്പെടെ എട്ടു സംസ്ഥാനങ്ങളാണ് ധാരണാ പത്രം ഒപ്പു വച്ചത്

ഇതേസമയം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്

കൂടുതൽ അന്വേഷണത്തിനായി ഇവരെ കസ്റ്റഡിയിലെടുത്തു

ജാർഖണ്ഡ് ജനമുക്തി പരിഷത്ത് പ്രവർത്തകരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെന്ന് പോലീസ് അറിയിച്ചു ജാർഖണ്ഡിലെ ബാർകാകാനാ റെയിൽ പദ്ധതി നിർമ്മാണ കമ്പനിയുടെ താവളം ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടവരാണ് അറസ്റ്റിലായവരാണെന്ന് അധികൃതർ പറഞ്ഞു ജില്ലയിലെ വ്യവസായ കേന്ദ്രമായ പട്രാറ്റിൽ സജീവമായ ജെ

പി ഇവിടെ നിർബന്ധിച്ച് പണപ്പിരിവ് നടത്തുന്നതായും ആരോപണമുണ്ട്

മേഖലയിൽ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് റ്റോന്തുചുറ്റുകയായിരുന്ന സൈന്യത്തിന് നേരെ തീവ്രവാദികൾ വെടി ഉതിർക്കുകയായിരുന്നു ഇരു ഭാഗത്തും ആളപായമുണ്ട്ടായ്തായി റിപ്പോർട്ടില്ല

സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ നിർദ്ദേശം നൽകി

താനെ ജില്ലയിലെ പഠാൻ ബന്തറിൽ ഇടിമിന്നലേറ്റ് ഒരാൾ മരിക്കുകയും മറ്റ് ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മറ്റൊരു സംഭവത്തിൽ കനത്ത മഴയെത്തുടർന്ന് ഉണ്ടായ റോഡപകടത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു കാലവർഷത്തെ തുടർന്ന് മുംബൈയിലെ സാധാരണ ജനജീവിതം താറുമാറായിരിക്കുകയാണ്

മഹാരാഷ്ട്രയിൽ ഇന്ന് കാറ്റിനും ഇടിമിന്നലോടും കൂടിയ കനത്ത മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

വിശദാംശങ്ങളുമായി തുളസീദാസ്

സെമിയിൽ അർജന്റീനയുടെ യുവാൻ മാർട്ടിൻ ഡെൽപോട്രോയെ മൂന്ന് സെറ്റ് നീണ്ട പോരാട്ടത്തിൽ കീഴടക്കിയാണ് നദാൽ ഫൈനലിൽ എത്തിയത്

കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ക്ലേ കോർട്ടിൽ നദാലിനെ തോൽപ്പിച്ചിട്ടുള്ള ഒരേയൊരു താരവുമാണ് തീവ് ഇന്നലെ നടന്ന വനിതകളുടെ ഫൈനലിൽ ടോപ് സീഡ് റൊമാനിയയുടെ സിമോണ ഹാലപ്പ് കിരീടം ചൂടി ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്കാണ് അവർ അമേരിക്കക്കാരി സ്ലൊവാനി സ്റ്റീഫനെ പരാജയപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ അർപ്പൻ ദീപ് കൌർ വെങ്കലം കരസ്ഥമാക്കി

ഇതുവരെ മൂന്ന് സ്വർണ്ണവും ഒരു വെള്ളിയും ഒമ്പത് വെങ്കലവും ഇന്ത്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട്

മുട്ബ്ബെയിൽ നടക്കുന്ന ചതുർരാഷ്ട്ര ഫുട്ബോൾ ടൂർണ്ണമെന്റിൽ കൃഷ്ണിത്ത ദിവസം ആഫ്രിക്കൻ ടീം ചൈനീസ് തായ്പേയെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു

ഇതോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളിലും നിന്നുള്ള ബുദ്ധമത പണ്ഡിതൻമാർ ആത്മീയ നേതാക്കൻമാർ തുടങ്ങിയവർ ആഘോഷപരിപാടികളിൽ സംബന്ധിക്കും ഇന്ത്യൻ എംബസിയും ഭൂട്ടാൻ റോയൽ ഗവൺമെന്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡെ സത്യസന്ധിന്റെല്ലെന്ന ആരോപണമുയർത്തിയാണ് കാനഡ്ഡയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന പിൻവലിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചത്